കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് അസ്വാസ്ഥ്യം അനുഭ വപ്പെട്ടത് വിശദ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ബിഷ പ്പിനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആറ് മണിക്കൂർ നിരീ ക്ഷണത്തിൽ കിടത്തിയിരിക്കുകയാണ്

അല്ലാത്ത പക്ഷം മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി നിയമനടപടികൾ പൂർത്തിയാക്കും മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിനു ശേഷം ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ബിഷപ്പിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബലാത്സംഗം പ്രകൃതിവിരുദ്ധ പീഡനം ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കെതിരായ വകുപ്പുകളിലാണ് ബിഷപ്പിനെതിരെ കേസെടുത്തതെന്ന് കോട്ടയം ജില്ലാപൊലീസ് മേധാവി എസ് ഹരിശങ്കർ മാധ്യമ ങ്ങളോട് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയശേഷം പൊലീസ് ബിഷപ്പിനെ കസ്റ്റ ഡിയിൽ വാങ്ങാ നാണ് തീരുമാനം ലലലലലലലലലലലലല ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കന്യാ സ്ത്രീകളടക്കം കൊച്ചിയിൽ നടത്തിവന്ന സമരം പിൻവ ലിച്ചതായി സമരസമിതി നേതാക്കൾ അറിയിച്ചു ഭാവി പരിപാടികൾ ഇന്ന് തീരുമാനിക്കുമെന്നും അവർ പറഞ്ഞു ലലലലലലലലലലലല കേരളത്തിലെ പ്രളയ നഷ്ടത്തെക്കുറിച്ച് ലോകബാങ്ക് എ ഡി ബി സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ വായ്പാ അപ്പേക്ഷയിൽ അന്തിമ തീരുമാനം

പ്രളയക്കെടുതി വിലയിരുത്താൻ സംസ്ഥാനത്തെ ത്തിയ കേന്ദ്രസംഘം ഇന്ന് കണ്ണൂർ പാലക്കാട് കോട്ടയം ജില്ലകളിൽ സന്ദർശനം നടത്തും നാളെ സന്ദർശനം പൂർത്തിയാക്കും തിങ്കളാഴ്ച സംഘം തിരുവനന്തപുരത്ത് മുഖൃമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നട ത്തും

വൈകീട്ടോടെ കണ്ണൂർ ജില്ലയിലെ പര്യടനത്തി നായി സംഘം യാത്ര തിരിച്ചു ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി തളിപ്പറമ്പ് താലൂക്കുകളിലെ മഴക്കെടുതി പ്രദേശങ്ങൾ സംഘം സന്ദർശിക്കും വൈകീട്ട് അവർ വയനാട്ടിലേക്ക് യാത്ര തിരിക്കും

നെല്ലിയാമ്പതിയിലാണ് ആദ്യസന്ദർശനം ശംഖുവാരത്തോട് കുമാരസ്വാമി സുന്ദരം കോളനികളും കരടിയോട് കോട്ടോപ്പാടം മണ്ണാർക്കാട് എന്നിവിടങ്ങളും സംഘം സന്ദർശിക്കും

പ്രളയദുരന്തം കാരൃമായി ബാധിച്ച ആലുവ പറവൂർ താലൂക്കുകളിലെ നാശനഷ്ട ങ്ങൾ അവർ വിലയിരുത്തി അതിനുശേഷം സംഘം ആലപ്പുഴ ജില്ലയിലേക്ക് പോയി

ഒരു മാസശമ്പളം സംഭാവന ചെയ്യുന്നതിൽ വിസ അറിയിക്കാത്തവരിൽ നിന്ന് മ്മ ത ം സംഭാവന സ്വീകരിക്കാനാണ് ഗവൺമെന്റ് തീരുമാനം എന്നാൽ വിസമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവ നക്കാരിൽ നിന്ന് ശമ്പളം പിടിയ്ക്കുന്നതിനെതിരെ പ്രതി പക്ഷ സംഘടനകൾ എതിർപ്പ് തുടരുകയാണ് പെൻഷൻകാരിൽ നിന്ന് സംഭാവന വാങ്ങുന്ന കാര്യ ത്തിൽ തീരുമാനമെടുക്കാൻ പെൻഷൻകാരുടെ സംഘ ടനകളുമായി മന്ത്രി ഡോ തോമസ് ഐസക് ഇന്ന് ചർച്ച നടത്തും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിലെ റാഞ്ചിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും ഓരോ വർഷവും പത്ത് കോടി കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗൃ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതാണ് പദ്ധതി

രവീന്ദ്ര ജഡേജ നാല് വിക്കറ്റ് വീഴ്ത്തി ഭുവനേശ്വർ കുമാറും ബുംറയും മൂന്നു വീതം വിക്കറ്റെ ടുത്തു

സജനിലൂടെയാണ് നാല് സ്വർണ്ണവും കേരളം സ്വന്തമാക്കിയത്

കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് കം ഗാരേജ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രാവി ലെയും വൈകീട്ടും കൂടുതൽ സർവീസുകൾ നടത്തി യാൽ ജനങ്ങളുടെ യാത്രാക്ലേശം കുറയും ഇതിന് യൂണി യൻ നേതാക്കളുമായി ചർച്ച നടത്തിവരികയാണ് ഡ്യൂട്ടി പരിഷ്ക്കരണം മൂലം നിന്നുപോയ സർവീസുകൾ പുന രാരംഭിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി

സുരക്ഷാ സംവിധാനം ശക്തമാക്ക ണമെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നേരത്തെ നിർദേശം നൽകിയിരുന്നു

ന്യൂനപക്ഷമതവിഭാഗങ്ങളുടെ വിവാഹപൂർവ കൌൺസിലിംഗ് കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടക്കും രാജ്യത്ത് ആദ്യമായാണ് ഗവണ്മെന്റ് ഇത്തരം വിവാഹപൂർവ്വ കൌൺസിലിംഗ് തുടങ്ങുന്നത് കോഴിക്കോട്ട് ജെ ഡി ടി നഴ്സിംഗ് സ്കൂളിൽ മന്ത്രി ഡോ കെ ടി ജലീൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യും

തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ വിദ്യാർത്ഥി കൾക്കാണ് അവാർഡ് നൽകുന്നത് മന്ത്രി ടി പി രാമ കൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജൃത്ത് മഹാസഖൃമുണ്ടാക്കിയാൽ ബിജെപിയെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അല്ലെങ്കിൽ ബിജെപി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും മനുഷ്യാവകാശ പ്രവർത്തക ശബനം ഹാഷ്മി പറഞ്ഞു കാസർകോട് നിന്ന് ആരംഭിക്കുന്ന സ്ത്രീ സമര മുന്നണിയുടെ സമാധാന സന്ദേശ യാത്ര ഉദ്ഘാടുന്നും ചെയ്യുകയായിരുന്നു

അന്നത്തെ സമ രത്തിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു

മറ്റന്നാൾ വൈകീട്ട് കളക്ട്രേറ്റ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഇതിന് തുടക്കം കുറിക്കും അടിയന്തരഘട്ടങ്ങളിൽ ദുരന്ത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് അവരെ പ്രാപ്തരാക്കാൻ ഫയർഫോഴ്സ് പ്രത്യേക പരിശീലനം നൽകും കേരള് സംഗീത നാടക അക്കാഡമിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ നാടക പഠന കൃാമ്പ് ഇന്ന് കണ്ണൂർ മാലൂരിൽ ആരംഭിക്കും

മില്ലുടമകളുമായി മന്ത്രി പി തിലോത്തമൻ കൊച്ചിയിൽ ചർച്ച നടത്തിയശേഷമായിരിക്കും ഇനി നെല്ല് സംഭരണം

ഇന്നലെ അത്താഴ പൂജക്ക് ശേഷം മേൽശാന്തി എ വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അയ്യപ്പ വിഗ്രഹത്തിൽ ഭസ്മാഭിഷേകം നട അടച്ചത്